ചെല മേശ്വർ ഇന്ന് വിരമിക്കും കേരളത്തിന്റെ റേഷൻ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ പ്രധാനമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രി നൽകിയ അപേക്ഷ വീണ്ടും നിരസിച്ചു അർജന്റീനയെ അട്ടിമറിച്ച് ക്രൊയേഷ്യ ലോകകപ്പ് ഫുട്ബോൾ പ്രീ

ഫ്രാൻസും പ്രീ കാർട്ടറിലെത്തി രു ൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ തെറ്റായ വാർത്തകളും വിവരങ്ങളും പോസ്റ്റ് ചെയ്യരുതെന്ന് ബി ജെ പി അധ്യക്ഷൻ അമിത് ഷാ പ്രവർത്ത കരെ ആഹ്വാനം ചെയ്തു നാലുവർഷത്തെ മോദി ഭരണത്തിന്റെ നേട്ട ങ്ങൾ എടുത്തുകാണിക്കുന്ന വിവരങ്ങൾ പ്രചരിപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ന്യൂഡൽഹിയിൽ പാർട്ടിയിലെ സാമൂഹ്യ മാധ്യമ പങ്കാ ളികളുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അമിത് ഷാ

ഭീകര വിരുദ്ധ പ്രവർത്തനം തടയൽ നിയമപ്ര കാരമാണ് നിരോധനം ഇസ്താമിക് സ്റ്റേറ്റ് ഓഫ് ഇറാഖ് ഇസ്താമിക് സ്റ്റേറ്റിന്റെ അഫ്ഗാനിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഘടകമായ ഷാം ഖൊറേസാൻ എന്നിവയെയും നിരോധിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് യുവാക്കളെ ഭീകര സംഘടനകളിൽ ചേർക്കുന്നെന്നും ഇന്ത്യക്കെതിരായ ഭീകര പ്രവർത്തന ങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതായും കാണിച്ചാണ് കേന്ദ്ര ഗവൺമെന്റ് നടപടി

മലയാളികളടക്കം യു എ ഇയിൽ അനധികൃതമായി തങ്ങുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ആശ്ചാസകരമാകുന്ന ഔദ്യോഗിക പ്രഖ്യാപനം ഉടനെയുണ്ടാകുമെന്ന് യു എ ഇ അധികൃതർ ദുബായിൽ അറിയിച്ചു സുപ്രീം കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജി ജസ്റ്റിസ് ജസ്തി ചെലമേശ്വർ ഇന്ന് വിരമിക്കും സുപ്രീം കോടതിയിലെ കർമ്മ നിരതമായ ഏഴു വർഷത്തെ സേവനത്തിനുശേഷമാണ് അദ്ദേഹം സ്ഥാന മൊഴിയുന്നത് സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായി ചീഫ് ജസ്റ്റിസിന്റെ ചില നടപടികൾക്കെതിരെ മറ്റ് മൂന്ന് മുതിർന്ന ജഡ്ജിമാരെ അണിനിരത്തി പത്രസമ്മേളനം നടത്തിയത് ജസ്റ്റിസ് ചെലമേശ്വർ ആയി രുന്നു സ്ഥകാര്യത മൌലിക അവകാശമാണെന്ന ചരിത്ര വിധി പ്രഖ്യാ പിച്ച ഒമ്പതംഗ ഭരണഘടനാ ബഞ്ചിലെ അംഗമായിരുന്നു അദ്ദേഹം ദേശീയ ജുഡീഷ്യൽ നിയമന കമ്മീഷൻ നിയമം ഇല്ലാതാക്കി കൊളീജി യം രൂപീകരിച്ച അഞ്ചംഗ ഭരണഘടനാ ബഞ്ചിൽ ഈ തീരുമാനത്തോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഒരേ ഒരാളും ജെ

കേരളത്തിന്റെ റേഷൻ വിഹിതം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യത്തിൽ പ്രധാനമന്ത്രിയെ കാണാൻ മുഖ്യമന്ത്രി പിണറായി വിജ യൻ നൽകിയ അപേക്ഷ വീണ്ടും കേന്ദ്രം നിരസിച്ചു

കഴിഞ്ഞ ആഴ്ചയും ഈ ആവശ്യമുന്നയിച്ച് മുഖ്യമന്ത്രി നൽകിയ അപേക്ഷ കേന്ദ്രം തള്ളുക യായിരുന്നു

ഹൈദരബാദ് പാർട്ടി കോൺഗ്രസിനുശേഷം ചേരുന്ന ആദ്യ കേന്ദ്രകമ്മിറ്റി യോഗത്തിൽ പാർട്ടി ചുമതലകൾ വിഭജിച്ചു നൽകാൻ തീരുമാനമെടുക്കും അടുത്ത പൊതുതെരഞ്ഞെടുപ്പിന്റെ തന്ത്ര ങ്ങളും യോഗം ചർച്ച ചെയ്തേക്കും ബി ജെ പിയെ പരാജയപ്പെടുത്തു ന്നതിന് ആവശ്യമായ സഖ്യസാധ്യതകളും സമകാലിക രാഷ്ട്രീയ സാഹ ചര്യവും യോഗത്തിൽ ചർച്ച ചെയ്യും കേന്ദ്ര കമ്മിറ്റിക്ക് മുന്നോടിയായി പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്നു ചേരും

ചൂരത്തിൽ ആരംഭിച്ച പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ അവർ വിലയിരുത്തും വൈകിട്ട് കട്ടിപ്പാറ കരിഞ്ചോ ലയിൽ രക്ഷാപ്രവർത്തനം നടത്തിയവരെ അനുമോദിക്കുന്ന ചടങ്ങിൽ മന്ത്രി ടി പി രാമകൃഷ്ണൻ പങ്കെടുക്കും

എറണാകുളം ജില്ലയിലെ കോളേജുകളും പ്രൊഫഷണൽ കോളേജുകളും ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവ ധിയായിരിക്കും കേന്ദ്രീയ വിദ്യാലയങ്ങൾക്കും സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾക്കും അവധി ബാധകമാണ്

മലവായ് തോടിന്റെ തീര ങ്ങളിൽ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്

വീണ് രാത്രിയിൽ ഗതാഗതം തടസ്സപ്പെട്ടു ശാന്തമ്പാറ പോലീസും നാട്ടുകാരും ചേർന്ന് മരം വെട്ടിമാറ്റി ഗതാഗതം പുനസ്ഥാപിച്ചു

രാഘവൻ എം പി ആവശ്യപ്പെട്ടു

ഹജ്ജ് എമ്പാർക്കേ ഷൻ ഓഫീസ് കൊച്ചിയിൽ നിന്നും കരിപ്പൂരിലേക്ക് മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു

കോഴിക്കോട് പേരാമ്പ്രയിലെ നിപ വൈറസ് ഉറവിടം കണ്ടെ ത്താൻ സംസ്ഥാന മൃഗ സംരക്ഷണ വകുപ്പ് കേന്ദ്രത്തിന് പദ്ധതി റിപ്പോർട്ട് സമർപ്പിച്ചു ആറു മാസം നീളുന്ന പഠനത്തിൽ രണ്ടു മാസം വവ്വാലു കൾ ഉൾപ്പെടെ ജീവജാലങ്ങളിൽ നിന്ന് സാമ്പിൾ ശേഖരിച്ച് വിദഗ്ദ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കും

റെയ്ഡ്കോ ഉല്പന്നങ്ങളെകുറിച്ച് വാട്സാപ്പിലൂടെ വ്യാജപ്ര ചാരണം നടത്തിയെന്ന പരാതിയിൽ കണ്ണൂരിൽ ഒരാളെ പൊലീസ് അറസ്റ്റ് ചെയ്തു കക്കാട് സ്വദേശി വി

മുഹമ്മദ് കുഞ്ഞിയാണ് അറസ്റ്റിലായ ത് റെയ്ഡ്കോ കറി പൌഡറിൽ മാരകവിഷം ചേർത്തിട്ടുണ്ടെന്ന് ഇയാൾ പ്രചരിപ്പിച്ചതായി പൊലീസ് പറഞ്ഞു

തോട്ടം തൊഴിലാളികൾക്ക് ലൈഫ് പദ്ധതിയിൽ വീട് വച്ചു നൽകാമെന്ന ഗവൺമെന്റ് തീരുമാനത്തെ ഇടുക്കി ജില്ലയിലെ ലയങ്ങ ളിൽ കഴിയുന്ന തൊഴിലാളികൾ സ്വാഗത്ം ചെയ്തു വീടിന് അനുവദി ക്കുന്ന ഫണ്ടിന്റെ പകുതി ഗവൺമെന്റ് നൽകും ബാക്കി പകുതി ഏഴ് വാർഷിക തവണകളായി തോട്ടം ഉടമകൾ തിരിച്ചടയ്ക്കേണ്ടതാണ്

കണ്ണൂർ സ്വദേശികളായ നീരജ് യാഷിർ അറാഫത്ത് എന്നിവരാണ് അറസ്റ്റിലായത് ഇന്നലെ രാവിലെ ചെക്ക്പോസ്റ്റിൽ വാഹന പരിശോധനയ്ക്കിടെയാണ് കാറിൽ നിന്ന് കഞ്ചാവ് കണ്ടെടുത്തത്

ഒരു മാസം നീണ്ട കൊട്ടിയൂർ വൈശാഖ മഹോത്സവം ഇന്ന് സമാപിക്കും രാവിലെ തൃക്കലശാട്ടം നടക്കും അടുത്ത വർഷത്തെ വൈശാ ഖമഹോത്സവം വരെ അക്കരെ കൊട്ടിയൂരിലേക്ക് പ്രവേശനമുണ്ടാവില്ല

ഇന്നലെ രാത്രി എട്ടര യോടെ കൊഴുവനാൽ പള്ളി സെമിത്തേരിക്കു സമീപം ബൈക്കിൽ കാറി ടിച്ചായിരുന്നു മരണം

വൈറസ് പത്തനംതിട്ട ജില്ലയിൽ സ്ഥിരീകരിച്ചു നാറാണംമൂഴി പഞ്ചായ ത്തിൽ പതിനൊന്ന് വയസ്സുകാരനിലാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ച ത് ടൈപ്പ് ത്രീ ഡെങ്കി വൈറസ് കൂടുതൽ അപകടകാരിയാണെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷീജ പറഞ്ഞു പനി പടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ പരിയാരം മെഡിക്കൽ കോളേജിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക വിഭാഗം ആരംഭി ച്ചു എല്ലാ വിഭാഗം ഡോക്ടർമാരുടെയും സ്വേനം കേന്ദ്രത്തിൽ ലഭ്യമാകും

കാഴ്ച വൈകല്യം നേരിടുന്നവരുടെ പ്രതിഷേധ പ്രകടനവും ധർണയും നാളെ തൊടുപുഴയിൽ നടക്കും കുടയത്തൂർ ലൂയി ബ്രെയിൽ സ്മാരക അന്ധവിദ്യാലയത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അധികൃതർ തടസ്സം നിൽക്കുന്നതിൽ പ്രതിഷേധിച്ച് തൊടുപുഴ വിദ്യാഭ്യാസ കാര്യാല യത്തിന് മുന്നിലാണ് ധർണ സംസ്ഥാന ലൈബ്രറി കൌൺസിലും കേരള സാഹിത്യ അക്കാ ദമിയും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വായനാ പാർലമെന്റ് നാളെ തൃശൂർ സാഹിതൃ അക്കാഡമി ഓഡിറ്റോറിയത്തിൽ വൈശാഖൻ ഉദ്ഘാ ടനം ചെയ്യും സമൂഹത്തെ മാറ്റിമറിച്ച പുസ്തകങ്ങളുടെ പുതുവായന പുസ്തക വായനയുടെ പ്രശ്നങ്ങൾ തുടങ്ങിയ വിഷയങ്ങൾ പാർലമെന്റ് ചർച്ച ചെയ്യും